പാക്കേജിന് ഇന്ന് അന്തിമ രൂപം നൽകും

ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാക്കിസ്ഥാനെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് ജയം

പാ ക്കേജുകളിൽ ഉൾപെടുത്തേണ്ട പദ്ധതികൾക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത യിൽ തിരുവനന്തപുരത്ത് ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം അന്തിമ രൂപം നൽ കും സംസ്ഥാനത്തെ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് രാവി ലെ അവലോകനം ചെയ്യുന്നുണ്ട് ചീഫ് സെക്രട്ടറി ഡി

പി വകുപ്പ് സെക്ര ട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും നാശനഷ്ടം വിലയിരുത്താ നെത്തിയ കേന്ദ്രസംഘം ഉച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണും രാത്രി അദ്ദേ ഹം ഡൽഹിക്ക് പോകും നാളെ ചേരുന്ന സി

എം പോളീറ്റ്ബ്യൂറോ യോഗത്തിലും പിണറായി വിജയൻ പങ്കെടുക്കും ് അതിനിടെ പ്രളയക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്രസംഘത്തിന്റെ സ ന്ദർശനം ഇന്നലെ പൂർത്തിയായി വയനാട് മലപ്പുറം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളാണ് സംഘം ഇന്നലെ സന്ദർശിച്ചത്

ഓരോ മേഖലയിലും സംഭവിച്ച കെ ടുതികളും നഷ്ടവും ജില്ലാ കളക്ടർ ഡോ

കാർത്തികേയൻ സംഘത്തെ ധ രിപ്പിച്ചു കടൽക്ഷോഭത്തെത്തുടർന്ന് തീരത്തിനും റോഡിനും കടൽഭിത്തിക്കും നാശനഷ്ടം സംഭവിച്ച ഇരവിപുരം മൺറോത്തുരുത്തിലെ ത്രകർന്ന വീടുകളും കൺട്രാംകാണിയിലെ പൊതുജനാരോഗ്യകേന്ദ്രവും മുക്കം കലുങ്കും കേന്ദ്രസം ഘം നേരിൽ കണ്ടു ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രളയകാലത്ത് ഉണ്ടായ എല്ലാ നഷ്ടവും ഗവൺ മെന്റ് നികത്തുമെന്ന് മന്ത്രി ജെ

ര ക്ഷാപ്രവർത്തനത്തിൽ കേടായ വള്ളങ്ങൾ നന്നാക്കി വരികയാണ് പൂർണ്ണമാ യും നശിച്ച വള്ളങ്ങൾക്ക് പകരം പുതിയത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു ് ് സംസ്ഥാന നിയമസ്ഭയുടെ പരിസ്ഥിതി സമിതി ഇടുക്കി ജില്ലയിലെ ദുരന്ത ബാധിതപ്രദേശങ്ങൾ ഇന്ന് സന്ദർശിക്കും ചെയർമാൻ മുല്ലക്കര രത്നാകരന്റെ അധ്യക്ഷതയിൽ രാവിലെ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സമിതി യോ ഗം ചേരും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥരിൽ നിന്നും പരി സ്ഥിതി പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നട ത്തും ഇതിനുശേഷമായിരിക്കും സമിതി അംഗങ്ങൾ ദുരന്തബാധിത പ്രദേശ ങ്ങൾ സന്ദർശിക്കുക

പ്രളയകാലത്ത് നിസ്വാർ ത്ഥ സേവനം ചെയ്ത ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം തിരിച്ചു വാങ്ങു ന്നത് തെറ്റായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ് സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ കനത്തമഴയ്ക്ക് സാധ്യതയെ ന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥല ങ്ങളിൽ കനത്തമഴ പെയ്യും കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും പ ത്തനംതിട്ട ജില്ലയിൽ നാളെയും പാലക്കാട് തൃശൂർ ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ അലർട്ടായിരിക്കും ഒഡീഷ തീരത്ത് രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ച ത്തീസ്ഗഢ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണെന്നും ഇതിന്റെ പ്രഭാവമാണ് സം സ്ഥാനത്ത് മഴക്ക് കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാ ക്കി ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ട മത്സരത്തിനിടെ ദക്ഷിണേന്ത്യൻ മഹാ സമുദ്രത്തിൽ അപകടത്തിൽപെട്ട മലയാളി നാവികൻ അഭിലാഷ്ടോമിയെ ഇ ന്ന് ഉച്ചയോടെ രക്ഷപ്പെടുത്താനാവുമെന്ന് രാജ്യരക്ഷാ മന്ത്രി നിർമലാസീതാരാ മനും നാവിക സേനയും അറിയിച്ചു

പരിക്കേറ്റ അഭിലാഷിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നാവികസേനാ ഉപ മേധാവി വൈസ്അഡ്മിറൽ അജിത്കുമാറുമായി സംസാരിച്ചതായും അവർ അറിയിച്ചു

ഒസിരിസിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പെർത്തിൽ നിന്ന് ര ക്ഷാദൌതൃത്തിനായി പോയ ഓസ്ട്രേലിയൻ നാവികകപ്പൽ എച്ച്

എസ് ബല്ലാരിറ്റിയിലേക്ക് അഭിലാഷ് ടോമിയെ മാറ്റുമെന്നും ഈ കപ്പലിലാകും അഭി ലാഷിനെ ഇന്ത്യയിലേക്ക് കൊണ്ട് വരികയെന്നും രാജ്യരക്ഷാ മന്ത്രാലയ വ ക്താവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്ത്യൻ നാവികസേനയുടെ ഐ

എ സ് സത്പുര ഐ

എസ് ജ്യോതി എന്നീ കപ്പലുകൾ അഭിലാഷിനടുത്തേ ക്ക് പോയിട്ടുണ്ടെന്നും വെള്ളിയാഴ്ചയോടെ മാത്രമേ ഐ

എസ് സത്പു രക്ക് അദ്ദേഹത്തിനടുത്തെത്താൻ കഴിയൂവെന്നും വക്താവ് വൃക്തമാക്കി ശ ക്തമായ കാറ്റിലും ആഞ്ഞടിച്ച തിരമാലയിലും തകർന്ന പായ്വഞ്ചിയുടെ പാ യ്മരം ഒടിഞ്ഞുവീണാണ് അഭിലാഷിന് നട്ടെല്ലിന് പരിക്കേറ്റതെന്നാണ് റിപ്പോർ ട്ട്

രണ്ട് ദിവസത്തെ പൊലീസ് കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചരൃത്തിലാണിത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടുവരെയാണ് ഫ്രാങ്കോമുള യ്ക്കലിനെ കോടതി ശനിഴാഴ്ച പൊലീസ് കസ്റ്റഡിയിൽ വിട്ടത് അതിനിടെ ഫ്രാങ്കോമുളയ്ക്കലിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് അന്വേ ഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും ചോദ്യം ചെയ്യലിനോ ട് അദ്ദേഹം സഹകരിക്കാത്ത സാഹചര്യത്തിലാണിത് എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർഥിയും എസ്

ഐ നേ താവുമായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം മജിസ് ട്രേറ്റ് കോടതിയിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും കേസിൽ പ്രതികളായ ക്യാം പസ് ഫ്രണ്ട് എസ്

ക്യാംപസ് ഫ്ര ണ്ട് യൂണിറ്റ് സെക്രട്ടറി ജെ ഐ മുഹമ്മദ് കേസിൽ ഒന്നാംപ്രതിയും കൃാംപസ് ഫ്രണ്ട് ജില്ലാപ്രസിഡന്റ് ആരിഫ് ബിൻ സലീം രണ്ടാംപ്രതിയുമാണ് മാലദ്വീപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർഥി ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹ് വിജയിച്ചു

സംസ്ഥാന മന്ത്രിസഭ ഉടൻ പുനസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗോവയിലെ പാർട്ടി കോർഗ്രൂപ്പ് അംഗങ്ങളുമായി ചർച്ച ന ടത്തിയ ശേഷം ട്വിറ്ററിലാണ് അമിത്ഷാ ഇക്കാര്യം അറിയിച്ചത്

ഏഷ്യാകപ്പിൽ തുടർച്ചയായി രണ്ടാംതവണയാണ് ഇന്ത്യ പാക്കിസ്ഥാനെ തോൽപിക്കുന്നത് ് ് അബൂദാബിയിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് മൂന്ന് റണ്ണിന് അഫ്ഗാനി സ്ഥാനെ തോൽപ്പിച്ചു ജയത്തോടെ ബംഗ്ലാദേശ് ഫൈനൽ പ്രതീക്ഷ സജീവ മാക്കി അഫ്ഗാനിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

പുരുഷ വിഭാഗത്തിൽ ദേശീയ റെക്കോർഡോടെ അഞ്ച് സ്വർണം നേടിയ കേരളത്തിന്റെ ്സാജൻ പ്രകാശ് മികച്ച താരമായി

ഇതോടെ നാല് മത്സര ങ്ങളിൽ ഏഴ് പോയിന്റു നേടിയ ഇന്ത്യ ഗ്രൂപ്പിൽ രണ്ടാമതായി പാലക്കാട് സമാപിച്ച കാലിക്കറ്റ് സർവകലാശാല പുരുഷ വിഭാഗം ഖൊഖൊ ചാംപ്യൻഷിപ്പിൽ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളജ് ജേതാ ക്കളായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളജിനെയാണ് ടി

ടൈ ബ്രേക്കറിൽ കോഴിക്കോട് ജില്ലയെ മറികടന്നാണ് മല പ്പുറം ചാമ്പ്യൻപട്ടം കരസ്ഥമാക്കിയത് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ജേതാക്കൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു

നവോത്ഥാന പ്രസ്ഥാനത്തി ന്റെ ഫലമായുണ്ടായ സാമൂഹ്യ മാറ്റമാണ് ഈ ഉന്നതിക്ക് കാരണമെന്ന് അദ്ദേ ഹം പറഞ്ഞു പട്ടികജാതി ക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സ മാപന യോഗം ചെറുകുന്ന് താവത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉഡാൻ സർവീസ് ആരംഭിക്കേണ്ട കാ ര്യം പരിഗണിക്കേണ്ടതുണ്ടെന്ന് സുരേഷ്ഗോപി എം

വി മാനത്താവളത്തിലേക്കുള്ള റോഡ് വികസന കാര്യത്തിൽ കർണാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മട്ടന്നൂരിലെ വി മാനത്താവളം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു സുരേഷ്ഗോപി ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ സ്ത്രീസമര മുന്നണി നടത്തുന്ന ദേശീയ യാത്രയ്ക്ക് കണ്ണൂരിൽ സ്വീകർണം നൽകി

പടപ്പങ്ങോട്ടെ മുസ്തഫയാണ് മരിച്ചത്

എറണാകുളം ഇടപ്പള്ളി പോണേക്കരയിലെ അജയനാണ് മരിച്ചത് കണ്ണൂർ ബി

എൽ അക്കൌണ്ട്സ് ഓഫീസിലെ ട്രെയിനിയാണ്

എയെയും മുൻ എം

മാവോയിസ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ പൊലീസ് നിരീക്ഷണവും തെരച്ചിൽ പ്രവർ ത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്